രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു

അന്തരിച്ചു

സിനിമ ടിക്കറ്റ് ടി വി ക്യാമറ കമ്പ്യൂട്ടർ വീൽചെയർ പവർ ബാങ്ക് തീർത്ഥാടനത്തിനുള്ള വിമാന ടിക്കറ്റ് വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയവക്കാണ് ഇന്ന് മുതൽ വില കുറയുന്നത്

ടി കൌൺസിൽ തീരുമാനമെടുത്തത്

ഭിന്നശേഷിക്കാർക്കുള്ള വീൽചെയർ അടക്കമുള്ള നിക്കുതിരി ഉപകരണങ്ങളുടെ നിരക്ക് അഞ്ച് ശതമാനമാക്കിയതിനാൽ ഇവക്കും വില കുറയും പ്രധാനമന്ത്രി ജൻ ധൻ യോജന പ്രക്ടാർമുള്ള എസ്ബി അക്കൌണ്ടുകൾക്കും ശീതീകരിച്ചു പച്ചക്കറികൾക്കും സംഗീത പുസ്തകങ്ങൾക്കും ഇന്നു മുതൽ നികുതിയില്ല കംപ്യൂട്ടർ മോണിട്ടർ ടിവി സ്ക്രീൻ ഡിജിറ്റൽ വീഡിയോ കൃാമറകൾ ഉപയോഗിച്ച ടയർ കാർഷിക ആവശ്യങ്ങൾക്കുള്ള യന്ത്രഭാഗങ്ങൾ ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കുന്ന പവർ ബാങ്കുകൾ വീഡിയോ ഗെയിമുകൾ കായിക ഉപകരണങ്ങൾ എന്നിവക്കും വില കുറയും

തെലങ്കാന ആന്ധ്രാപ്രദേശ് ഗവർണർ ഇ

തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരറാവു തെലങ്കാന ഹൈക്കോടതി ജസ്റ്റിസുമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് ശേഷവും ഇരു സംസ്ഥാനങ്ങൾക്കുമായി ഹൈദരാബാദിൽ ഒരു ഹൈക്കോടതി മാത്രമാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് പുതുവർഷാശംസകൾ നേർന്നു വിശദാംശങ്ങളുമായി സുവർണ

എല്ലാവരും സന്തോഷത്തോടും ആരോഗ്യത്തോടുമുള്ളവര്ായിരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ്റിലൂടെട്ട ആശംസിച്ചു

രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമായി നൽകുന്ന സംഭാവനകൾക്ക് പകരമായി അവതരിപ്പിച്ചവയാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ ഇതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകളിൽ സുതാര്യത ഉറപ്പുവരുത്താനാണ് ശ്രമം

കഴിഞ്ഞ ജനുവരിയിലാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്ര പദ്ധതിക്ക് തുടക്കമായത് എല്ലാ ഇന്ത്യൻ പൌരൻമാർക്കും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും കടപ്പത്രങ്ങൾ വാങ്ങാം കഴിഞ്ഞ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ശതമാനമെങ്കിലും നേടിയ അംഗീകൃത രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ സ്വീകരിക്കാം

ഹരിയാനയിലെ ഹിസാറിലാണ് ഷ്കറ്റ്വും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്

ഇവിടങ്ങളിൽ അതിശൈത്യവും മൂടൽമഞ്ഞും തുടരുകയാണ്

കാനഡയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം പ്രോഗ്രസീവ് സൂപ്പർ ന്യൂക്ലിയർ പാഴ്സി എന്ന രോഗം ബാധിച്ച് ഓർമ്മ ശക്തിയും ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയും നഷ്ടപ്പെട്ട് ഏറെ നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം

രാജേഷ് ഖന്നയായിരുന്നു ചിത്രത്തിലെ നായകൻ

എൽഎയും സി

ഐ എം നേതാവുമായ സൈമൺ ബ്രിട്ടോക്ക് ജന്മനാടിന്റെ ആദരാജ്ഞലി

സംസ്കാരം പിന്നീട് നടക്കും

മുൻ മുഖ്യമന്ത്രിയും ഡി

കെ എം

എ യുമായിരുന്ന എം കരുണാനിധിയുടെ നിര്യാണത്തെ തുടർന്നാണ് തിരുവരൂറിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്

ഡി എം എൽ

ഹരിചന്ദ് മിഥയുടെ മരണത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്

ഖാസിപൂർ മുഹമ്മദാബാദ് റോഡിൽ നിഷാദ് പാർട്ടി പ്രവർത്തകർ തടസം സൃഷ്ടിച്ചപ്പോൾ ശ്രീ വത്സ് ഉൾപ്പെടെയുള്ള പോലീസുകാർ അവരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്